എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം

കെ ശൈലജ തിരുവനന്തപുരത്ത് അറി യിച്ചു ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നും മന്ത്രി പറഞ്ഞു

വയനാട് ജില്ലയിൽ മലേ ഷ്യയിൽ നിന്നെത്തിയ മൂന്നുപേരും സൌദിഅറേബൃ സിംഗപ്പൂർ എന്നിവിട ങ്ങളിൽ നിന്നെത്തിയ രണ്ടുപേരും ഉൾപ്പെടെ ഇരുപത് പേർ നിരീക്ഷണത്തി ലാണ് ജില്ലയിലെ റിസോർട്ട് ഹോംസ്റ്റേ ഹോട്ടൽ എന്നിവിടങ്ങളിൽ താമ സിക്കുന്ന വിനോദസഞ്ചാരികളുടെ വിവരം അധികൃതരെ അറിയിക്കണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു

രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ആശുപത്രിയിൽ എത്തി ക്കാൻ ആരോഗ്യവകുപ്പ് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി മന്ത്രി ടി പി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു

ഇവരെ നിരീക്ഷണത്തിലാക്കി

വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമ ളി വാഗമൺ മൂന്നാർ എന്നിവിടങ്ങളിൽ റിസോർട്ടിലും ഹോട്ടലുകളിലും പുതിയ ഓൺലൈൻ ബുക്കിംഗ് പാടില്ലെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി

കെ ശൈലജ അറിയിച്ചു കൊറോണ വൈറസ് സാഹചരൃത്തിൽ എല്ലാ പൊലീസ് ഉദ്യോ ഗസ്ഥർക്കും റാങ്ക് വൃത്യാസമില്ലാതെ മാസ്കും ഹാൻഡ് സാനിറ്റൈസറും നൽകാൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ജില്ലാ പൊലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ ജയിലുകളിൽ ഐസൊലേഷൻ മുറി കൾ ഒരുക്കാൻ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് നിർദ്ദേശം നൽകി രോഗ ലക്ഷണങ്ങൾ കാണിക്കുന്ന തടവുകാരെ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റും

ഇവരുടെ ഫോണുകൾ കണ്ടുകെട്ടും മറ്റ് നിയമ നടപടികളും ഇവർ നേരിടേണ്ടിവരുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറി യിച്ചു

ജില്ലാ മെഡിക്കൽ ഓഫീ സർമാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക വീഡിയോ കോൺഫറൻസും നടത്തും

റാന്നിയിലെ വീട്ടിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത്

കൊറോണ സംശയിക്കുന്ന ഒരു കേസുപോലും കരിപ്പൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ജില്ലയിൽ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ എല്ലാ പൊതുചടങ്ങുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായും കലക്ടർ അറി യിച്ചു

എസ്

സി ഒന്നും രണ്ടും വർഷ് ഹയർ സെക്കൻഡറി വൊക്കേ ഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം

എസ് എൽ സി പരീക്ഷ എഴുതാൻ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ

മറ്റ് ക്സാസുകളിലെ പരീക്ഷ മാറ്റിവെയ്ക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും രദ്ദേഷ്ടങ കോഴിക്കോട്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച കൊടിയത്തൂരും വേങ്ങേരിയിലും വിശദ പഠനത്തിന് വിദഗ്ദ്ധ സംഘം ഇന്നെത്തും ദേശാടന പക്ഷികളിൽ നിന്ന് രോഗം പകർന്നുവെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രാഥമിക നിഗ മനം പൂക്കോട് വെറ്ററിനെറി സർവകലാശാലയിലെയും തിരുവല്ല പക്ഷിരോഗ നിർണയ ലാബിലെയും വിദഗ്ദ്ധരാണ് സ്ഥിതി വിലയിരുത്തുന്നത് നിലവിൽ രോഗം നിയന്ത്രണവിധേയമാണെന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തി

ഒരാഴ്ചകൊണ്ട് ഇത് പൂർത്തിയാകും രോഗബാധിത മേഖല യുടെ പത്ത്കിലോമീറ്റർ പരിധിയിൽ കോഴിക്കടകൾ അടച്ചുപൂട്ടാൻ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട കുരങ്ങുപനി ബാധിച്ച് വയനാട് തിരുനെല്ലിയിൽ വീട്ടമ്മ മരിച്ച സാഹച രൃത്തിൽ വനംമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലെ എല്ലാവർക്കും പ്രതി രോധ കുത്തിവെപ്പ് നൽകാൻ അടിയന്തിര അവലോകന യോഗം തീരുമാ നിച്ചു

പനി പകർത്തുന്ന കുരങ്ങുചെള്ളിനെ അകറ്റി നിർത്താൻ ആവശ്യമായ മരുന്നുകളും ലേപനങ്ങളും ആരോഗ്യവകുപ്പ് ലഭ്യ മാക്കിയിട്ടുണ്ട്

തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം വിളംബരം ചെയ്യുന്ന ഹോളി ആഘോഷങ്ങൾക്ക് കൊറോണ ഭീഷ ണിയെ തുടർന്ന് ഇത്തവണ പതിവ് നിറപ്പകിട്ട് ഉണ്ടാവില്ല രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് ഹോളി ആശം സകൾ നേർന്നു രാഷ്ട്രപതി ഭവനിൽ ഇത്തവണ പരമ്പരാഗത ഹോളി ആഘോഷം കൊറോണ സാഹചര്യം മുൻനിർത്തി ഒഴിവാക്കിയിട്ടുണ്ട് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര മന്ത്രി അമിത്ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരും നിരവധി കേന്ദ്രമന്ത്രിമാരും ഹോളി ആഘോഷങ്ങ ളിൽ നിന്ന് മാറിനിൽക്കും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ആഘോഷങ്ങൾ ഒഴി വാക്കി കൊറോണ് വൈറസ് വ്യാപനം തടയാൻ ലോകത്തെ വൈദ്യശാസ്ത്ര വിദഗ്ദ്ധർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു

തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ ഒരുമിച്ചെത്തുന്ന താണ് കാലതാമസമുണ്ടാക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു

ഏഷ്യൻ യോഗൃതാ മത്സരത്തിൽ സെമിഫൈനലിലെത്തിയതോടെയാണ് മേരികോം അമിത് പങ്കൽ സിമ്രൻജിത്ത് കൌർ എന്നിവർക്ക് ഒളിംമ്പിക് ബർത്ത് ഉറപ്പിക്കാനായത്

മൂന്ന് പോയിന്റ് നേടിയ എം ജി സർവകലാശാലക്കാണ് രണ്ടാംസ്ഥാനം

മറ്റ ന്നാൾ തൃശൂരിൽ തുടങ്ങാൻ തീരുമാനിച്ച കേരള ടീമിന്റെ ക്യാമ്പും മാറ്റിയി ട്ടുണ്ട്

ടാർ റോഡുകൾക്ക് മുകളിൽ സിമന്റ് കോൺക്രീറ്റിന്റെ ഒരു പാളി സ്ഥാപിച്ച് മുപ്പത് വർഷം ഈടുനിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കുന്ന രീതി യാണിത് തലശേരി മണ്ഡലത്തിൽ മെക്കാഡം ടാർ ചെയ്ത് നവീകരിച്ച മൂന്ന് റോഡുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പൂഴിത്തോട് മാവട്ടം ശുദ്ധജല വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇടുക്കി തോപ്രാംകുടി സപ്ലൈകൊ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട വിതരണവും മന്ത്രി നിർവഹിച്ചു

പി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തറക്കല്പിട്ടു

വി ലൈനും ഒന്നരവർഷം കൊണ്ട് പൂർത്തിയാ ക്കുമെന്ന് മന്ത്രി എം